അമിത്ഷാ ഇന്റർനെറ്റ് സൌകര്യം ഉചിത സമയത്ത് പുനഃസ്ഥാപിക്കുമെന്നും കേന്ദ്ര മന്ത്രി

കേന്ദ്രമന്ത്രി രാജ്നാഥ് സ്പിംഗ് സിംഗപ്പൂർ പ്രതിരോധമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി പ്രതിരോധ സഹകരണം ശക്തിപ്പെടുത്താനുള്ള തീരുമാനത്തിൽ ഇരുരാജൃങ്ങളും സന്തുഷ്ടി രേഖപ്പെടുത്തി

വിവരസാങ്കേതിക രംഗത്തെ പുരോഗതി സേനയുടെ പരിശീലനത്തിന് പ്രയോജനപ്പെടുത്തണമെന്ന് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ്

ഇന്ത്യാ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിന് ഗോവയിൽ തിരശ്ശീല ഉയർന്നു

രാജ്യസഭയിൽ ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം കൂടുതൽ വിവരങ്ങളുമായി വിനോദ്

പൌരത്വ ഭേദഗതി ബില്ലും ദേശീയ പൌരത്വ രജിസ്റ്ററും തമ്മിൽ ബന്ധമില്ലെന്നും ശ്രീ അമിത്ഷാ വ്യക്തമാക്കി ഇപ്പോൾ സംഘർഷരഹിതമാണ് ജമ്മു കശ്മീർ എന്ന് ശ്രീ അമിത്ഷാ പറഞ്ഞു

സൈനികർക്കു നേരെ കല്ലേറു സംഭവങ്ങളും മുൻ സമയത്തെ അപേക്ഷിച്ച് വളരെ കുറവാണ് ഉർദു ഇംഗ്ലീഷ് പത്രങ്ങൾ കൃത്യമായി ഇറങ്ങുന്നു ടി വി ചാനലുകൾ സാധാരണ പോലെ പ്രവർത്തിക്കുന്നു എല്ലാ ഗവൺമെന്റ് ഓഫീസുകളും കോടതികളും തുറന്നിട്ടു ്

അധികൃതരുടെ ശുപാർശപ്രകാരം ഉചിതമായ സമയത്ത് ഇന്റർനെറ്റ് സൌകര്യം പുനഃസ്ഥാപിക്കും

ന്യൂസ് ഡെസ്ക് ആകാശവാണി

ചിട്ടിഫ മേഖലയെ കൂടുതൽ സുതാര്യമാക്കുന്നതിനാണ് ബിൽ ഭേദഗതി ചെയ്യുന്നത്

ലോക്സഭയിൽ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം

ഇത് സർവ്വകാല റെക്കോർഡാണ്ട് പൃത്ത് വർഷത്തിലേറെ പഴക്കമുള്ള കേസുകൾ വേഗത്തിൽ തീർപ്പാക്കാൻ നടപടി എടുക്കണമെന്ന് ഹൈക്കോടതി ചീഫ് ജസ്റ്റീസുമാരോട് അഭ്യർത്ഥിച്ചിട്ടു ്

ദേശീയ സരോഗസി ബോർഡ് സ്റ്റേറ്റ് സരോഗസി ബോർഡ് സമിതിയുടെ രൂപീകരണം വാടക ഗർഭധാരണത്തെ നിയന്ത്രിക്കുന്നതിനു വേ ിയുള്ള സമിതിയുടെ രൂപീകരണം തുടങ്ങിയ കാര്യങ്ങൾ ബില്ലിൽ വൃവസ്ഥ ചെയ്യുന്നു ഇന്നലെ ആരോഗ്യമന്ത്രി ഡോ ഹർഷവർദ്ധനാണ് ബിൽ രാജ്യസഭയുടെ ചർച്ചയ്ക്കായി മൂന്നോട്ട് വച്ചത്

തീരദേശത്തെ ജനങ്ങളുടെ ദൂരിതത്തിന് അറുതി അവരുത്തണമെന്ന് അവർ ആവശ്യപ്പെട്ടു

ഗവൺമെന്റ് നിർമ്മിക്കുന്ന കടൽ ഭിത്തി ശാശ്വത പരിഹാരമല്ലെന്നും അവർ ചൂ ിക്ക്ാട്ടി

ജീവിതം കൂടുതൽ ലളിതവും ആയാസരഹിതവുമാക്കാൻ പദ്ധതിക്കു കഴിഞ്ഞു ആവാസ് പദ്ധതി മൂന്നു വർഷം പൂർത്തിയാക്കുന്നതിനോടനുബന്ധിച്ച് ടീറ്ററിലാണ് പ്രധാനമന്ത്രി ഇക്കാര്യം പറഞ്ഞത് എല്ലാവർക്കും പാർപ്പിടം ഉറപ്പാക്കുകവഴി ലക്ഷക്കണക്കിനാളുകളെ ശാക്തീകരിക്കാൻ കഴിഞ്ഞു വിടെന്നത് നാലു ചുമരുകൾ മാത്രമല്ല സ്പ്നങ്ങൾ പൂവണിയുകയും അഭലാഷങ്ങൾ ചിറക് വിടർത്തുകയും ചെയ്യുന്ന സ്ഥലമാണെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു

ഇന്നു ചേർന്ന നാലാമത് ഇന്ത്യ സിംഗപ്പൂർ പ്രതിരോധ ഉച്ചകോടിയിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും സിംഗപ്പൂർ പ്രതിരോധ മന്ത്രി ഡോ

ഇന്ത്യയിൽ നടക്കുന്ന ഏറ്റവും വലിയ ബയോടെക്നോളജി പങ്കാളികളുടെ കൂട്ടായ്മയായിരിക്കും ഇതെന്ന് ബയോടെക്നോളജി വകുപ്പ് സെക്രട്ടറി ഡോ

ഏഴ് പുതിയ പാതകൾ ര ് പാതയിരട്ടിപ്പ് ഒരു ഗേജ് മാറ്റം എന്നിവ ഇവയിൽ ഉൾപ്പെടും

സമുദ്ര സുരക്ഷ ഒരുക്കുന്നത്തിൽ ഇന്ത്യൻ നാവിക സേന മികച്ച സേവനമാണ് കാഴ്ചവെക്കുന്നതെന്നും ശ്രീ രാംനാഥ് കോവിന്ദ് പറഞ്ഞു ഇതിനായി സേന അത്യന്താധുനിക സൌകര്യങ്ങൾ പ്രയോജനപ്പെടുത്തണമെന്നും രാഷ്ട്രപതി പറഞ്ഞു കണ്ണൂരിലെ ഏഴിമല നാവിക അക്കാദമിക്ക് പ്രസിഡന്റസ് കളർ അവാർഡ് സമ്മാനിച്ച് സംസാരിക്കുകയായിരുന്നു രാഷ്ട്രപതി രാവിലെ ഏഴിമല അക്കാദമിയിൽ നടന്ന പ്രൌഡ ഗംഭീരമായ ചടങ്ങിൽ അക്കാദമി കേഡറ്റ് ക്യാപ്റ്റൻ സുശീൽ സിംഗ് രാഷ്ട്രപതിയിൽ നിന്ന് അവാർഡ് ഏറ്റുവാങ്ങി

ഇന്ത്യൻ സിനിമയിലെ ഇതിഹാസതാരങ്ങളായ അമിതാഭ് ബച്ചനും രജനീകാന്തും ഭദ്രദീപം കൊളുത്തി മേളയ്ക്ക് തുടക്കം കുറിച്ചു കൂടുതൽ വിവരങ്ങളുമായി വിനോദ്

ഇന്ത്യൻ സിനിമയ്ക്ക് ലോകമെമ്പാടും വലിയ പ്രിയമാണൂളളത്

സിനിമ നിർമ്മാണത്തിന് എല്ലാ സൌകര്യങ്ങളും ലഭ്യമാക്കാനും അനുമതിക്കുമായി ഗവൺമെന്റ് ഏകജാലക സംവിധാനം ഏർപ്പെടുത്തിയിട്ടു ് ദിവ്യാംഗർക്കായി സിനിമ നീർമ്മിക്കണമെന്ന് നിർമ്മാതാക്കളോട് കേന്ദ്രമന്ത്രി ആവശ്യപ്പെട്ടു

മെഗാസ്റ്റാർ അമിതാഭ് ബച്ചന്റെ സാന്നിധ്യത്തിലാണ് പുരസ്ക്കാരം സമ്മാനിച്ചത്

ഇറാനിയൻ സംവിധായിക സമീറ മക്മൽ ബഫിന്റെ മാർഗി ആന്റ് ഹെർ മദർ ആണ് സമാപന ചിത്രം

മലയാളത്തിൽ നിന്നും മനു അശോകന്റെ ഉയരെ ടി കെ രാജീവ്കുമാറിന്റെ കോളാമ്പി എന്നിവയും പ്രദർശിപ്പിക്കും

റാഞ്ചിയിൽ വിവിധ കക്ഷി പ്രതിനിധികളുമായും സംഘം ആശയിവിനിമയം നടത്തി

സമ്മേളനത്തിനു മുമ്പായി സി എ ജിയുടെ ഓഫീസിലെ മഹാത്മാഗാന്ധിയുടെ പ്രതിമ പ്രധാനമന്ത്രി അനാഛാദനം ചെയ്യും

ശ്രീകാന്ത് ഹോങ്കോങ് താരം വോങ് വിങ് കി വിൻസന്റിനെ നേരിട്ടുള്ള സെറ്റുകൾക്കാണ് പരാജയപ്പെടുത്തിയത്